വേണ്ടെന്ന് ആരോഗ്യമന്ത്രി കെ കെ ശൈലജ സമൂഹ മാധ്യമങ്ങളിൽ നിപയെക്കുറിച്ച് വ്യാജവാർത്ത പ്രചരിപ്പിച്ചതിന് മൂന്ന് പേർക്കെട്ടിൽ കേസ്

ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത

വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു

ദക്ഷിണാഫ്രിക്കയ്ക്ക് തകർച്ചു

ഇവരുടെ രക്തസാമ്പിൾ പരിശോധനയ്ക്ക് പൂനെയിലേക്ക് അയച്ചതായും മന്ത്രി പറഞ്ഞു കൂടുതൽ വിവരങ്ങളുമായി സോഫിയ

എ്റ്റണാ്കുളത്ത് നിപ്പ സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പൂർണ്ണ സജ്ജീകരണങ്ങളുള്ള ഏഎസൊലേഷൻ വാർഡും ഐ

യു വും പ്രവർത്തനമാരംഭിക്കുന്നത്

രോഗികളെ സന്ദർശിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി

ഇടുക്കി കട്ടപ്പന സ്വദേശി ജേക്കബ് തോമസാണ് ആംബുലൻസിൽ മരിച്ചത് കടുത്ത പനിയെ തുടർന്ന് ജേക്കബിനെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ചികിൽസ നിഷേധിച്ചുവെന്ന് ബന്ധുക്കൾ പരാതി പ്പെടുന്നു തുടർന്ന് സമീപത്തെ രണ്ട് സ്വകാരൃ ആശുപത്രികളിലേക്ക് കൊണ്ടു പോയെങ്കിലും അവിടെയും സ്വീകരിച്ചില്ലെന്ന് ബന്ധുക്കൾ പറഞ്ഞു

വെന്റിലേറ്റർ സൌകര്യം ഒഴിവില്ലാത്തതിനാലാണ് രോഗിയെ സ്വീകരിക്കാതിരുന്നതെന്നാണ് കോട്ടയം മെഡിക്കൽ കോളോജ് അധികൃതർ നൽകുന്ന വിശദീകരണം

സംസ്ഥാനതല പ്രവേശനോൽസവം തൃശൂർ ജില്ലയിലെ ചെമ്പുചിറ ഗവൺമെന്റ് ഹയർ സെക്കന്ററി സ്കൂളിൽ നടക്കും

എല്ലാ ജില്ലകളിലും സ്കൂളുകളിൽ പ്രവേശനോൽസവം ഒരുക്കിയിട്ടുണ്ട്

എറണാകുളം ജില്ലയിലെ സ്കൂളുകളും നാളെ തുറക്കു്ർ നിപ്പയുമായി ബന്ധപ്പെട്ട എല്ലാ സാഹചര്യങ്ങളും നിയന്ത്രണ്ട് പ്രിധേയമാണെന്ന് ജില്ലാകളക്ടർ അറിയിച്ചു

കാസർകോട് മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിൽ ഹാൻവീവിനും എറണാകുളം മുതൽ തിരുവനന്തപുരം വരെ ഹാന്റെക്സിനുമാണ് യൂണിഫോം വിതരണത്തിന്റെ ചുമതല

ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കനത്ത മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ട്

സംസ്ഥാനത്തെ വിവിധ സ്ഥലങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനാ സമ്മേളനങ്ങളും സ്വലാത്ത് സംഗമങ്ങളും നടന്നു പ്രമുഖ മതപണ്ഡിതന്മാരും ആത്മീയ നേതാക്കളും ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി രാഷ്ട്രപതി ഉപരാഷ്ട്രപതി എന്നിവരും ഗവർണ്ണർ പി സദാശിവം മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടങ്ങിയവരും ഈദ് ആശംസകൾ നേർന്നു താമരശ്ശേരി ചെറിയ പെരുന്നാൾ പ്രമാണിച്ച് വയനാട് താമരശ്ശേരി ചുരത്തിൽ പോലീസ് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി

ശനിയാഴ്ച രാവിലെ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും ഗുരുവായൂർ ക്ഷേത്രദർശനത്തിനു ശേഷം ബി ജെ പിയുടെ പൊതുപരിപാടിയിലും പ്രധാനമന്ത്രി പങ്കെടുക്കും

സി ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യൻ ബൌളിംഗ് മികവിനു മുന്നിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് തകർച്ചു

ടോസ് നേടിയ ദക്ഷിണാഫ്രിക്ക ബാറ്റിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു ലോകകപ്പിലെ ഇന്ത്യയുടെ ആദ്യമത്സരമാണിത്